രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഉൾപ്പെടെ നേതാക്കൾ ഓണാശംസ നേർന്നു നവകേരളം പടുത്തുയർത്താൻ ഓരോ മലയാളിക്കും ഈ ഓണം ഊർജമാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ൾ ൽ ൾ സമൃദ്ധിയുടെയും ഐശ്വരൃത്തിന്റെയും നിറസ്മരണക ളുമായി മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കു ന്നു മഹാബലിയുടെ ദീപ്തസ്മരണയിൽ നിറപറയും നില വിളക്കും തുമ്പപ്പൂക്കളും ഒരുപിടി നല്ല ഓർമകളും മനസ്സിൽ നിറച്ചാണ് ലോകമലയാളികൾ തിരുവോണത്തെ വരവേൽക്കു ന്നത്

രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഓണാശംസ നേർന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ മലയാളി കൾക്കും ഈ ഉത്സവവേളയിൽ ആശംസകൾ നേരുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു കൊയ്ത്തുൽസവമായ ഓണം ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ആശംസിച്ചു വിദേശകാര്യ സഹമന്ത്രി വി മുരളീധര്നും എല്ലാ മലയാ ളികൾക്കും ഓണാശംസകൾ നേർന്നു

ഈ ഉത്സവം എല്ലാവർക്കും ആനന്ദവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെയെന്ന് രാഹുൽ ആശംസിച്ചു ശബരിമല സന്നിധാനത്ത് ഇന്ന് തിരുവോണസദ്യ ഒരു ക്കും ഉച്ചപ്പൂജക്കുശേഷം തന്തി കണ്ഠരര് മഹേഷ് മോഹ നര് വിളക്കിനു മുന്നിൽ ഇലയിട്ട് ആദ്യം ഭഗവാനും തുടർന്ന് ദർശനത്തിനെത്തുന്നവർക്കും സദ്യ വിളമ്പും ആറന്മുളയിൽ തിരുവോണ സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങളുമായി കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തി തിരുവോണത്തോണിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും സംഘവും ചേർന്ന് സ്വീകരിച്ചു

നവകേരളം പടുത്തുയർത്താൻ ഓരോ മലയാളിക്കും ഈ ഓണം ഊർജമാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നല്ല നാളെ എന്ന സങ്കൽപം മലയാളി മനസ്സിൽ ഉയർന്നുവരുന്ന കാഴ്ചയാണ് അതിജീവനത്തിന്റെ നാളുക ളിൽ ക്കേരളം കണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓണാഘോ ഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നാടിനെ പുനർനിർമ്മിക്കുന്നതിനും നവകേരളം സൃഷ്ടിക്കുന്നതിനും ജാതി വർഗ മതഭേദമില്ലാതെ നാം കൈകോർത്ത കാഴ്ച ലോകത്തിനു തന്നെ മാതൃകയായതിൽ അഭിമാനിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജാതി മത വൃത്യാസമില്ലാതെ ഒരുമയോടെ ജീവിച്ച ഒരു സങ്കല്പമാണ് കേരളത്തിന്റെ നവോത്ഥാന പ്രക്രിയക്ക് അടിസ്ഥാനമെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് വേദികളിലായി നടക്കുന്ന ആഘോഷ പരിപാടികൾ ശനിയാഴ്ച്ച സമാപിക്കും ഓണക്കാലത്ത് മലയാളികൾക്ക് റേഷൻ പഞ്ചസാര നിഷേ ധിച്ചത് കേന്ദ്ര ഗവൺമെന്റാണെന്ന് മന്ത്രി പി

റേഷൻ പഞ്ചസാരയുടെ പേരിൽ മുതലക്ക ണ്ണീർ ഒഴുക്കുന്ന പ്രതിപക്ഷമനേതാവ് സംസ്ഥാനങ്ങൾക്ക് റേഷൻ പഞ്ച സാര വിഹിതം നിർത്തി വെച്ചു കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാത്തത് ലജ്ജാവഹമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ആർഭാടത്തിനും ധൂർത്തിനും ഒരു കുറവും വരുത്താത്ത സംസ്ഥാന ഗവൺമെന്റ് പാവങ്ങൾക്ക് സൌജന്യമായി നൽകി യിരുന്ന ഓണക്കിറ്റും സ്പെഷൽ പഞ്ചസാരയും സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ നിഷേധിച്ചത് ക്രൂരതാണെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പാവങ്ങളെ പട്ടിണിക്കിട്ട ശേഷമാണ് ഓണാഘോഷത്തിന്റെ പേരിൽ ഗവൺമെന്റ് കോടികൾ പൊടിക്കുന്നതെന്ന് അദ്ദേഹം തിരു വനന്തപുരത്ത് കുറ്റപ്പെടുത്തി അതീവ ദരിദ്ര ജനവിഭാഗങ്ങളെയും പ്രളയബാധിതരെയും പട്ടിണിക്കിട്ട് കോടികൾ പൊടിച്ച് ഓണം ആഘോഷിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന് അപമാനമാണെന്ന് കെപിസിസി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്ത പുരത്ത് പറഞ്ഞു പാക്കിസ്ഥാൻ ഭീകരവാദത്തിന്റെ പ്രഭവകേന്ദ്രമാണെന്ന് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൌൺസിലിൽ ഇന്ത്യ വ്യക്ത മാക്കി

ഭീകരർക്കും അവർക്ക് സംരക്ഷണം നൽകു ന്നവർക്കുമെതിരെ പോരാടാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നി ക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു നയതന്ത്രത്തിന്റെ ബദൽ എന്ന നിലയിൽ പാക്കിസ്ഥാൻ അതിർത്തി കടന്ന് ഭീകരപ്ര വർത്തനം നടത്തുകയാണെന്നും അവർ പറഞ്ഞു ലോകകപ്പ് ഫുട്ബാൾ യോഗൃതാ മത്സരത്തിൽ കരു ത്തരും ഏഷ്യൻകപ്പ് ജേതാക്കളുമായ ഖത്തറിനെ ഇന്ത്യ ഗോൾരഹിത സമനിലയിൽ തളച്ചു ദോഹയിൽ നടന്ന മത്സ രത്തിൽ ടീമിനെ നയിച്ച ഗോൾകീപ്പർ ഗുർപ്രീത് സിങ് സന്ധു വിന്റെ ഉജ്ചല സേവുകളാണ് ഇന്ത്യക്ക് വിജയത്തിന് തുലൃ മായ സമനില സമ്മാനിച്ചത് ഖത്തർ ഗോൾമുഖത്തെത്തിച്ച അര ഡസൻ ഷോട്ടുകളെങ്കിലും ഗുർപ്രീത് രക്ഷപ്പെടുത്തി

യോഗ്യതാ റൌണ്ടിലെ ആദ്യമത്സരത്തിൽ ഇന്ത്യ ഒമാനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോറ്റിരുന്നു ഖത്തറിനെ തിരെ സമനില നേടിയതോടെ ഗ്രൂപ്പ് ഇ യിൽ ഇന്ത്യക്ക് ആദ്യ പോയിന്റായി

ആലപ്പുഴ പായിപ്പാട് ജലോത്സവം ഇന്നാരംഭിക്കും നാളെയാണ് മത്സരവള്ളം കളി എട്ട് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ മുപ്പതോളം കളിവള്ളങ്ങൾ പങ്കെടുക്കും മലബാറിന്റെ ജലോത്സവമായ പൊന്നാനി ബിയ്യം കായൽ വള്ളംകളി മത്സരം നാളെ വള്ളംകളിയുടെയും പൂർത്തി യാക്കിയ പവലിയൻ നിർമാണ പ്രവൃത്തികളുടെയും ഉദ്ഘാ ടനം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കും പത്ത് മേജർ വള്ളങ്ങളും പതിമൂന്ന് മൈനർ വള്ളങ്ങളുമാണ് ഇത്ത വണ മത്സരിക്കുന്നത് കോഴിക്കോട് പന്നിയങ്കരയിൽ പുലർച്ചെ പാൽ കയറ്റി വന്ന പിക്ക് അപ്പ് വാൻ കാറിലിടിച്ച് രണ്ട് പേർ മരിച്ചു

മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല പരുക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളെജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭയരഹിത ഇന്തൃ എല്ലാവരുടെയും ഇന്തൃ കാമ്പയിന്റെ ഭാഗമായി മുസ്ലിംലീഗ് അടുത്ത മാസം രണ്ടിന് കോഴിക്കോട്ട് പൌരാവകാശ സംരക്ഷണ റാലി സംഘടിപ്പിക്കും അസം പൌരത്വ പ്രശ്നം കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ മുസ്ലിംലീഗ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭമെന്ന് പാർട്ടി നേതാക്കൾ കോഴിക്കോട്ട് അറിയിച്ചു ഇതിന്റെ തുടർച്ചയായി എറണാകുളം തിരുവനന്തപുര്ം എന്നിവിടങ്ങളിലും സമാനമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി

ഇതോടനുബന്ധിച്ച് ബഹുസ്വര ഇന്ത്യ എങ്ങോട്ട് എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

കണ്ണൂർ ചെറുപുഴയിലെ കരാറുകാരൻ ജോസഫിന്റെ മരണം സംബന്ധിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കെ

സി സമിതി നാളെ തെളിവെടുപ്പ് നടത്തും

സി ജനറൽ സെക്രട്ടറിമാരായ വി

നാരായണൻ കെ

അനിൽകുമാർ കോഴിക്കോട് ഡി

സി പ്രസിഡന്റ് ടി സിദ്ധിഖ് എന്നിവരാണ് സമിതി അംഗങ്ങൾ

പ്രേമചന്ദ്രൻ എം

ഈ മാസം നാലിന് തിരുച്ചിറപ്പളളിയിൽ ചേർന്ന എം

മാരുടെ യോഗത്തിൽ വിഷയം ഉന്നയിച്ച എൻ

പ്രേമചന്ദ്രൻ ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഏർപ്പെടുത്തിയ മലപ്പുറം പി മൂസ പുരസ്കാരം കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ

നമ്പ്യാർക്ക് വിദേശകാരൃ സഹമന്ത്രി വി മുരളീധരൻ കോഴിക്കോട്ട് സമാപിച്ചു മുതിർന്ന മാധൃമ പ്രവർത്തകൻ വി അശോകനെ കേന്ദ്ര മന്ത്രി ആദരിച്ചു

ഓഫീസിനു മുന്നിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട്ട് എം

വാസുദേവൻ നായർ ഉപവാസത്തിൽ പങ്കെടുക്കും

ഉൾപെടെ പരീക്ഷകളിലെ ചോദ്യങ്ങൾ മല യാളത്തിലും വേണമെന്ന് ആവശൃപ്പെട്ടാണ് പി

തമിഴ്നാട് ഉസലംപട്ടി സ്വദ്ദേശികളായ സച്ചിൻ മൊസനം എന്നിവരാണ് പൊലീസ് പിടിയിലായത് കോഴിക്കോട് ജില്ലയിൽ ഓണാഘോഷപരിപാടികളിൽ ഹരിതപെരുമാറ്റചട്ടം പാലിച്ച് പൂർണമായും മാലിന്യ വിമുക്തമാക്കാൻ ശുചിത്യ്മിഷൻ തീരുമാനിച്ചു

കുറ്റിക്കാട്ടൂർ സ്വദേശി വിപിനാണ് പിടിയിലായത്